പ്രത്യേക യോഗം വില്യിരുത്തി

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

ഗവൺമെന്റ് ചട്ടലംഘനം നടത്തുന്നവന്നെ കോൺഗ്രസ് ആരോപണത്തെ ആഭ്യന്തരമന്ത്രി തള്ളിക്കളഞ്ഞു വെറുതെ പഴിചാരാതെ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് വൃക്തമായ നിലപാടെടുക്കാൻ അദ്ദേഹം കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു

ജമ്മു കാശ്മീരിരെന്നാൽ പാക് അധീന കാശ്മീരും അക്സായി ചിന്നും ചേർന്ന പ്രദേശമാണെന്നന്നും ശ്രീ അമിത് ഷാ പറഞ്ഞു പ്രമേയ അവതരണ സമയത്ത് ശ്രീ

ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്നവരുടെ സമ്മതമില്ലാതെ അതിന്റെ അതിർത്തിയിൽ മാറ്റം വരുത്തുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് കോൺഗ്രസംഗം മനീഷ് തിവാരി പറഞ്ഞു ഗവൺമെന്റ് തീരുമാനത്തെ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരിയും ഡി

ജമ്മു കാശ്മീരിൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് സുധീപ് ബന്ദോപാദ്യ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഡി എ

ജമ്മു കാശ്മീർ ജനത കേന്ദ്രത്തീൽ പ്രിശ്വാസമർപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യം മുഴൂവൻ ഇതിനെ അനുകൂലിക്കുമ്പോൾ കോൺഗ്രസ് മാത്രം എതിർക്കുന്നത് ദൌർഭാഗൃകരമാണെന്ന് പാർലമെന്ററികാര്യ മന്ത്രി പ്ര്യ്ക്ക്റ്ളാദ് ജോഷി പറഞ്ഞു ഭരണഘടനാ ശില്പി ഡോ

ചരിത്രപരമായ ഈ വിഡ്സിത്തത്തെയാണ് നര്യ്യേന്ദ് മോദി ഗവൺമെന്റ് തിരുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു

പൊതുവിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നാക്കം ്നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഉറപ്പാക്കുന്ന വൃവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുന്നു ബിൽ രാജ്യസഭ ഇന്നലെ പാസാക്കിയിരുന്നു

ജെ

ജനങ്ങൾ കൂട്ടത്തോടെ ഈ തീരുമാനം അംഗീകരിച്ചതിനാൽ മിക്ക പ്രതിപക്ഷ പാർട്ടികൾക്കും ഇതിനെ പിന്തുണക്കേണ്ടി വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രത്യേക പദവി കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ജമ്മു കാശ്മീരിൽ ഏകോപനമല്ല മറിച്ച് വിഭജനമാണ് നടന്നതെന്നും ശ്രീ ജെയ്റ്റ്ലി പറഞ്ഞു

ചിലയിടങ്ങളിൽ വീടുകളിലും കടകളിലും വെള്ളം കയറി

മഹാരാഷ്ട്രയിലെ പൂനെ സത്താര സങ്കാലി കോലാപൂർ ജില്ലകളിൽ കനത്ത മഴയും അണക്കെട്ട് നിറഞ്ഞതും വെള്ളപ്പൊക്കത്തിന് ഇടയാക്കി

കൂടുതൽ വിവരങ്ങളുമാിയി കരോൾ അബ്രഹാം

കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വെടിനിർത്തൽ കരാർലംഘനം നിയന്ത്രണ രേഖയ്ക്കടുത്തുള്ള നുഴഞ്ഞുകയറ്റം തുടങ്ങിയ പ്രകോപനകരമായ നിരവധി നടപടികൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായതായി അദ്ദേഹം വ്യക്തമാക്കി തെറ്റായ വിവരങ്ങളുടെ പ്രചാരണത്തിന് ഇവർ സാമൂഹ്യ മാധ്യമങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ശത്രുക്കളുടെ തന്ത്രങ്ങളിൽ ജനങ്ങൾ വീണുപോകരുതെന്നും അവരുടെ ദുഷ്പ്രചാരണങ്ങളും അപവാദങ്ങളും സമൂഹത്തിൽ വ്യാപിക്കുന്നത് ജനങ്ങൾ തടയണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു തങ്ങളുടെ നിലപാടുകളിൽ പാകിസ്ഥാൻ സേന മാറ്റം വരുത്താൻ തയാറായില്ലെങ്കിൽ ഇന്ത്യ തക്കതായ മറുപടി നൽകുമെന്നും ഏത് സന്ദർഭത്തെയും നേരിടാൻ നമ്മുടെ സേന തയാറാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മേഖലയിലെ സമാധാനവും ഐക്യവും തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ശ്രീ രൺബീർ സിംഗ് ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഉപഭോക്താക്കളെ വഴിതെറ്റിക്കുന്ന പരസ്യങ്ങൾ ആശാസ്യകരമല്ലാത്ത വിപണന രീതികൾ ഉപഭോക്താക്കളുടെ അവകാശലംഘനം തുടങ്ങിയവയുടെ നിയന്ത്രണവും ബില്ലിൽ വൃവസ്ഥ ചെയ്യുന്നു

ദേശീയ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ ഉപഭോക്തൃതർക്ക പരിഹാര കമ്മീഷനുകളുടെ രൂപവത്ക്കരണവും ബില്ലിൽ വൃവസ്ഥ ചെയ്യുന്നു

ഇന്ത്യൻ സേനയ്ക്കു നേരെ ് പാക് സേന ഷെല്ലാക്രമണവും വെടിവയ്പ്പും നടത്തിയെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യൻ ് സേനയും ശക്തമായി തിരിച്ചടിച്ചു

അതേസമയം പാക് വെടിവയ്പ്പിൽ സൈനികർക്ക് അപകടമൊന്നും ഉണ്ടായതായി റിപ്പോർട്ടില്ല കഴിഞ്ഞ നാലു ദിവസത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുന്നത്

കേസിൽ മധ്യസ്ഥ ശ്രമം പരാജയപ്പെട്ടതിനെ തുട്ടർന്നാണിത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ അദ്ധ്യക്ഷതയിലുള്ള അഞ്ചംഗ് ഭരണഘടനാ ബഞ്ച് ഈ മാസം രീണ്ടിന് മധ്യസ്ഥ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചിരുന്നു മുൻ സുപ്രീംകോടതി ജഡ്ജി എഫ്

ജസ്റ്റിസുമാരായ എസ്

വൈ ചന്ദ്രചൂഢ് അശോക് ഭൂഷൻ എസ്

അയോധൃ കേസിലെ നടപടികൾ റെക്കോർഡ് ്ചെയ്യണമെന്ന മുൻ ആർ

നേതാവ് കെ

ഗോവിന്ദാചാരൃയുടെ ആവശൃം പരമോന്നത കോടതി തള്ളി

സ്വവസതിയിൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ശ്രീ അബ്ദുള്ള കഴിയുന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ പറഞ്ഞു നേരത്തെ ചർച്ചയ്ക്കിടെ എൻ സി

നേതാവ് സൂപ്രിയ ശൂലെ സഭയിൽ ഫറൂഖ് അബ്ദുള്ളയുടെ അസാന്നിധൃം ശ്രദ്ധയിൽപ്പെടുത്തുകയും കാശ്മീരിനെ സംബന്ധിച്ച ചർച്ചകൾ അദ്ദേഹമില്ലാതെ പൂർണ്ണമാകില്ലെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു

വി ഐ

ഹെലികോപ്റ്റർ അഴിമ്തിക്കേസിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ്ക്മർനാഥിന്റെ അനന്തരവൻ രതുൽ പുരി സമർപ്പിച്ച മുൻകൂർ ്ജൂമ്യാപേക്ഷ ഡൽഹി കോടതി തള്ളി